എ സ്ഥാനാർത്ഥിയും രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള ബി ജെ പി എം പിയുമായ ഓം ബിർള എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസ് ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന കക്ഷികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വച്ച പ്രമേയം അംഗീകരിക്കുകയായിരുന്നു

ചടങ്ങിൽ സംസാരിക്കവെ സേവനത്തിനായി ഉഴിഞ്ഞുവച്ച ജീവിതമാണ് ശ്രീ ഓം ബിർളയുടെതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സഭയുടെ സുഗമമായ നടത്തിപ്പിനായി തന്റെ പാർട്ടിയുടെ എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് ആദിർ രഞ്ജൻ ചൌധരി അറിയിച്ചു

പാർലമെന്റിന്റെ പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കൽ വികസനം എന്നീ വിഷയങ്ങളും അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ അവസരങ്ങളിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആകാശവാണിയിലൂടെ നടത്തിയ മൻ കി ബാത്ത് പരിപാടിയിൽ ഈ വിഷയത്തിൽ ഒരു സംവാദം ഉണ്ടാകണമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൻമദിന ആശംസകൾ നേർന്നു

തീരദേശ പാത പദ്ധതി ഇവിടത്തെ ആവാസ വ്യവസ്ഥയേയും മത്സ്യബന്ധന മേഖലയേയും ഗുരുതരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിച്ചത്

ബാജോയി പ്രദേശത്തെ ലാറവൻ ഗ്രാമത്തിൽ ഇന്നലെ രാത്രിയാണ് അപകടം ഉണ്ടായത്

ഏഴ് പേർ സംഭവസ്ഥലത്തും ഒരാൾ ആശുപത്രിയിലും മരിച്ചു

മുഖ്യമന്ത്രി യോഗി ആദിതൃനാഥ് സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി

രണ്ട് സാമ്പത്തിക ശക്തികളും തമ്മിൽ വ്യാപാരയുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഈ തീരുമാനം

അന്ന് വ്യാപാര തർക്കവും നിരക്കുകളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച നടത്തി

കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഇരുനേതാക്കളുടെയും പ്രതിനിധികൾ ചർച്ച നടത്തും ചൈനീസ് പ്രസിഡന്റുമായി ടെലിഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് ട്രംപിന്റെ ട്വീറ്റ്

ലോകത്തിന് അസൂയ ജനിപ്പിക്കുന്ന സമ്പദ്വ്യവസ്ഥയാണ് അമേരിക്കയുടേതെന്നും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ലക്ഷക്കണക്കിനുള്ള അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ താൻ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

ഇതിനെ തുടർന്നാണ് സ്ഥാനാർത്ഥി ്പട്ടിക ചുരുങ്ങിയത് ഇത് രണ്ടാം തവണയാണ് രഹസ്യ വോട്ടെടുപ്പ് നടന്നത്

മുൻ ബ്രക്സിറ്റ് സെക്രട്ടറി ഡൊമിനിക് റാബ് പട്ടികയിൽ നിന്ന് പുറത്തായി ജർമി ഹണ്ട് മൈക്കൽ ഗോവ് സജീദ് ജാവിദ്റോറി സ്റ്റീവാർട്ട് എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ

ആദ്യഘട്ടം വോട്ടെടുപ്പ് മാർച്ചിലാണ് നടന്നത്

മൂന്നിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുപ്പെട്ടു

സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് നഗരകാര്യ റീജണൽ ഡയറക്ടർ പരിശോധിക്കുമെന്ന് മന്ത്രി എ

മൊയ്ദീൻ അടിയന്തരപ്രമേയ നോട്ടീസിന് മറുപടി നൽകി ആത്മഹത്യ നിർഭാഗ്യകരമാണെന്നും സംഭവം ഗൌരവപൂർവ്വം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു തെറ്റുണ്ടെങ്കിൽ ഉറച്ച നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ഹോൾഡ് വോയിസ് പ്രധാന ആഘോഷം നടക്കുന്ന റാഞ്ചിയിലുൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് വൻ യോഗ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മൊറാർജി ദേശായി യോഗ ഇൻസ്റ്റിട്യൂട്ട് ഡയറക്ടർ ഡോ

യുവജനകാരൃമന്ത്രാലയത്തിന് കീഴിലെ നെഹ്റു യുവ കേന്ദ്ര ബ്ലോക്ക് തലത്തിൽ യുവാക്കൾക്ക് പരിശീലനം നൽകുകയും അവരെ തങ്ങളുടെ ഗ്രാമങ്ങളിൽ സമാന രീതിയിലുള് പരിപാടികൾ സംഘടിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗ ദിന സന്ദേശത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമാകുന്നത്

സതാംപ്ടെണിൽ ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടും